എം കാലവർഷത്തിൽ സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം

സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അൽപ്പസ മയത്തിനകം തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം ചേരും പാർലമെന്റ് വർഷകാലസമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും

രാമായണമാസാചരണത്തിന് നാളെ തുടക്കം

തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലെ മലയോരമേഖലയിലു മാണ് ശക്തമായ മഴ തുടരുന്നത് പലയിടങ്ങളിലും വെള്ളം കയ റി

ആലപ്പുഴ വണ്ടാനം മാധവൻമുക്കിന് സമീപം നിയന്ത്രണം വിട്ട കപ്പൽ തീരത്തേക്ക് കയറി എറണാകുളം കുട്ടൻപുഴയിൽ വെള്ളപ്പൊക്കത്തിൽ പ്രദേശം ഒറ്റപ്പെട്ടതിനാൽ ആശുപത്രിയിലെത്തിക്കാനാവാതെ രോഗി മരിച്ചു

എറണാകുളം എം ജി റോഡിലും സൌത്ത് റെയിൽവെസ്റ്റേഷ നിലും വെള്ളം കയറി എറണാകുളം കോട്ടയം റൂട്ടിൽ മരങ്ങൾ വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു

എ റണാകുളം നിലമ്പൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ ട്രെയിനുകളാണ് റദ്ദാക്കിയത്

ആലപ്പുഴ തുറവൂരിൽ ഓടിക്കൊണ്ടിരുന്ന അന്ത്യാദയ എക്സ്പ്രസിന് മുകളിലേക്ക് മരംവീണ് ഗതാഗതം തടസ്സപ്പെട്ടു കാസർകോട് വെള്ളരിക്കുണ്ട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് ശേഷം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും വീശി യടിച്ച ചുഴലിക്കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം മരംവീണ് നിരവധി വീടുകൾക്ക് കേടുപറ്റി മുഴുപ്പിലങ്ങാട് യു പി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു ദേശീയപാതയോരത്ത് സ്ഥാപിച്ച കൂറ്റൻ പര സ്യബോർഡുകൾ തകർന്നുവീണു

ജില്ല യിൽ കടലാക്രമണം രൂക്ഷമാണ് കണ്ണൂർ മാലൂരിൽ വീട് തകർന്ന് രണ്ട് പേർക്ക് പരിക്കേറ്റു മാലൂരിലെ സാറുവിനും മകനുമാണ് പരിക്കേറ്റത്

മൂന്നിടത്ത് ഉരുൾപൊട്ടി പൂഞ്ഞാർ തീകോയി കൂട്ടി ക്കൽ എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത് താഴ്ന്ന പ്രദേ ശങ്ങൾ വെള്ളത്തിനടിയിലായി നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു

ആളപായമില്ല ശക്തമായ മഴയെ തുടർന്ന് വീട്ടിലുള്ളവർ താമസം മാറിയിരുന്നു

ഇടുക്കിയിൽ ഇരുപതു വീടുകൾ തകർന്നു മൂന്നാറിൽ മണ്ണിടിച്ചിലുണ്ടായി കനത്ത മഴയിൽ ആലപ്പുഴജില്ലയിൽ വെള്ളപ്പൊക്കം കുട്ടനാ ട്ടിൽ ജലനിരപ്പ് ഓരോനിമിഷവും വർധിക്കുകയാണ് പമ്പ അച്ചൻകോവിൽ മണിമല മീനച്ചിൽ തുടങ്ങിയ നദികൾ കരക വിഞ്ഞ് ഒഴുകുന്നു

രാവിലെ അരൂ രിൽ റെയിൽപാളത്തിലേക്ക് മരം വീണ് അൽപ്പനേരം തീരദേശ പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അൽപ്പസമ യത്തിനകം തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം ചേരും

മുഖ്യ മന്ത്രി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ജില്ലാകലക്ടർമാരു മായി മഴക്കെടുതി ചർച്ചചെയ്യും സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരു വനന്തപുരത്ത് അറിയിച്ചു

ശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് രാത്രിയിൽ മലയോ രത്തെ യാത്ര നിയന്ത്രിക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെ ട്ടാൽ അപകടസാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസി ക്കണമെന്നും അതോറിറ്റി അറിയിച്ചു

കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാകേന്ദ്രം അറിയിച്ചു കനത്ത കാറ്റിലും മഴയിലും കെ

വൈദ്യുത തൂണുകളും ട്രാൻസ്ഫോർമറുകളും വ്യാപക മായി തകർന്നാണ് ബോർഡിന് വൻനാശനഷ്ടമുണ്ടായത് അറ്റ കുറ്റപ്പണികൾ യുദ്ധകാലടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നതായി കെ എസ്

ബി അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു

സമ്മേളനം സുഗമമാക്കുന്നതിന് ലോക്സഭാസ്പീക്കർ സുമിത്ര മഹാജൻ വിളിച്ച സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിവിധ പാർട്ടി നേതാക്കളുമായി സുമിത്ര മഹാജൻ വെവ്വേറെ കൂടിക്കാഴ്ച നടത്തും സമ്മേളന ത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ചർച്ചചെയ്യാൻ സോണിയാ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് നേതാക്കൾ ഡൽഹി യിൽ യോഗം തുടങ്ങി ശീതകാലസമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രം ചർച്ചചെ യ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ വൈകിട്ട് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ഗുലാംനബി ആസാദിന്റെ വസതിയിൽ യോഗം ചേരും

ജെ കുര്യന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന സഭാഉപാധ്യക്ഷ പദ വി യി ലേക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ യോഗം തീരുമാ നമെടുക്കുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ വർഷകാലസമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തെലുഗുദേശം പാർട്ടി നീക്കം ആരംഭിച്ചു കോൺഗ്രസ് ബി ജെ പി ഇതര കക്ഷികളുമായി ടി ഡി പി നേതാക്കൾ ഇക്കാര്യം ചർച്ചചെ യ്തുവരികയാണ്

എ ഘടകകക്ഷികളായ അകാലിദൾ ശിവസേന എൽ

കഴിഞ്ഞ സമ്മേളന കാലത്തും ടി ഡി പി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ നീക്കം നടത്തിയെങ്കിലും ലോക്സഭ യിലെ ബഹളം കാരണം പ്രമേയത്തെ അനുകൂലിക്കുന്നവരുടെ കണക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെന്നുകാണിച്ച് സ്പീക്കർ സുമിത്ര മഹാജൻ അനുമതി നിഷേധിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുത്തലാഖ് ജലസേചന പദ്ധതി കൾ വിദ്യാഭ്യാസം മറ്റു വികസന കാര്യങ്ങൾ തുടങ്ങിയവയിൽ നിരന്തരം തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെ ടുത്തി ഇതിന് പ്രധാനമന്ത്രി പാർലമെന്റിൽ മറുപടി പറയേണ്ടിവ രുമെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു വർദ്ധിച്ചുവരുന്ന ബാങ്ക് തട്ടിപ്പുകൾ കർഷകരുടെ സ്ഥിതി സ്ത്രീ സുരക്ഷ ദേശീയ സുരക്ഷയ്ക്കുനേരെയുണ്ടാകുന്ന ഭീഷണി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കു മെന്നും ആനന്ദ്ശർമ്മ അറിയിച്ചു സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ സ്വയം നിയന്ത്രണമേർപ്പെടുത്തണമെന്നാണ് ഗവൺമെന്റിന്റെ താൽപര്യമെന്നും ഉത്തരവാദിത്തോടെയാകണം അഭിപ്രായ ങ്ങൾ പ്രകടിപ്പിക്കേണ്ടതെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേ പണ മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് പറഞ്ഞു

ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷപാർട്ടികൾ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടി ക്കുകയാണെന്നും അദ്ദേഹം ഗാന്ധിനഗറിൽ പറഞ്ഞു

കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൻസ് കണ്ണന്താന ത്തിന്റെ അദ്ധ്യക്ഷതയിൽ ചേരുന്ന യോഗം സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളായ സ്വദേശ് ദർശൻ പ്രസാദ് എന്നിവ നടപ്പാക്കുന്നത് അവലോകനം ചെയ്യും സംസ്ഥാന ടൂറിസം വകു പ്പിന്റെയും ദേവസ്വം ബോർഡുകളുടെയും പ്രതിനിധികൾ യോഗ ത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും ക്ഷേത്ര ങ്ങളിൽ രാമായണപാരായണം സമൂഹ നാമജപം കഥാകഥനം രാമായണ പ്രശ്നോത്തരി പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും

കർക്കിടക സംക്രമ ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും ഇസ്ലാമിക പണ്ഡിതനും മുജാഹിദ് നേതാവുമായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി അന്തരിച്ചു

താനൂർ പുത്തൻതെരുവിലെ വീട്ടിലായിരുന്നു അന്ത്യം ദീർഘകാലം ശബാബ് വാരികയുടെ എഡിറ്ററായിരുന്നു ഖുർആൻ വിവർത്തനം ചെയ്തിട്ടുണ്ട് കുമ്പസാര രഹസ്യം പുറത്തു വിടുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വൈദികന്റെ ജാമ്യാപേക്ഷ പരിഗ ണിക്കുന്നത് സുപ്രീംകോടതി നാളത്തേക്ക് മാറ്റി

അതേസമയം റിമാൻഡിലായ വൈദികരുടെ ജാമ്യാപേക്ഷ തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും രണ്ടും മൂന്നും പ്രതികളായ ജോബ് കെ മാത്യു ജോൺസൺ വി മാത്യു എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുക ജലന്ധർ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മൊഴി അന്വേഷണസംഘം ഇന്ന് രേഖപ്പെടുത്തിയേക്കും എറണാകുളത്തെ ബിഷപ്പ് ഹൌസിൽ വൈക്കം ഡി

പിയുടെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുപ്പ് ജലന്ധർ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ മൊബൈൽ ഫോൺ രേഖകൾ ബുധനാഴ്ചക്കു മുൻപ് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു

അഭിമന്യുവിന്റെ കൊലപാതകക്കേസിൽ അറസ്റ്റിലായ ആദിലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ക്യാംപസ് ഫ്രണ്ട് പ്രവർത്തകൻ ആലുവ സ്വദേശി ആദിലിനെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക